ബിജെപി അടുത്തമാസം അഞ്ച് മുതൽ പത്തു വരെ ജനപരി വർത്തന യാത്ര നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പി

കണ്ണൂർ കല്ല്യാട്ട് ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന് മുഖ്യമന്ത്രി തറക്കല്ലിട്ടു

സദാശിവം ഉദ്ഘാടനം ചെയ്യും

സിപിഐഎമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും ക്ഷേത്ര വി ശ്വാസത്തെയും ആചാരങ്ങളെയും തകർക്കാൻ ശ്രമിക്കുകയാണെന്നും അ ദ്ദേഹം ആരോപിച്ചു പാലക്കാട് കോട്ട മൈതാനത്ത് ബി

പി പ്രവർ ത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അമിത്ഷാ മോ ദി ഗവൺമെന്റ് കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ച പദ്ധതികൾ സംസ്ഥാ ന ഗവൺമെന്റ് അട്ടിമറിച്ചെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തിൽ വിജയക്കുതിപ്പിനാണ് ബി ജെ

പിമാരുമായി നരേന്ദ്രമോദി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരുമെന്നും അമിത്ഷാ അവകാശപ്പെട്ടു കേരളത്തിൽ യു

എഫും എൽ

എഫും വിചിത്രമായ കൂട്ടുകെട്ടുകളുമായാണ് തെ രഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്

പ്രതിപക്ഷ മഹാസഖ്യം അധികാരത്തിൽ വന്നാൽ ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ പുതിയ പ്രധാനമന്ത്രി മാർ ഉണ്ടാകുമെന്നും അമിത്ഷാ പറഞ്ഞു കേരളം മോദിക്കൊപ്പംവീണ്ടും വേണം മോദി ഭരണം എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കു പാലക്കാട്ട് ചേർന്ന നേതൃ യോഗം രൂപം നൽകിയതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എ സ് ശ്രീധരൻ പിള്ള പറഞ്ഞു

നാലു മണിക്കൂർ കൊണ്ട് കേരളത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേ ക്ക് എത്താവുന്ന സെമി ഹൈസ്പീഡ് റെയിൽപാത നിർമിക്കുന്ന പദ്ധതി ക്ക് തത്തിൽ റെയിൽവേയുടെ അംഗീകാരമായതായി മുഖ്യമന്ത്രി പിണ റായി വിജയൻ അറിയിച്ചു കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പദ്ധതി അംഗീ കരിച്ചു കഴിഞ്ഞു കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപറേഷൻ രൂപീ കരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ ജി ല്ലയിലെ തളിപ്പറമ്പ് റവന്യൂ ഡിവിഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

എല്ലാ വീടുകളിലും ഹൈസ്പീഡ് ഇന്റർനെറ്റ് എ ത്തിക്കാനും പദ്ധതി നടപ്പിലാക്കുമെന്ന് പിണറായി വിജയൻ അറിയിച്ചു കണ്ണൂർ കല്ല്യാട്ട് സ്ഥാപിക്കുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു നഷ്ടപ്പെടുന്ന നാട്ടറിവുകൾ പൊതു സ്വത്താക്കി മാറ്റിയെടുക്കാൻ കഴിയണമെന്ന് അദ്ദേ ഹം നിർദേശിച്ചു

ചിലർക്കു മാത്രമറിയാവുന്ന് മരുന്ന് കൂട്ടുകൾ അവരുടെ മരണത്തോടെ നഷ്ടമാവുകയാണ് താളിയോല ഗ്രന്ഥങ്ങളിലെ അറിവു കൾ സമാഹരിച്ച് സമൂഹത്തിന് പ്രയോജനപ്പെടുത്താനാവണം ഡൽഹി യിലും ഗൾഫ് നാടുകളിലും ആയുർവേദ സെന്ററുകൾ ഗവൺമെന്റ് സ്ഥാ പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഡൽഹിയിൽ ഇതിന് നടപടികൾ ആ രംഭിച്ചു കഴിഞ്ഞു

പെരിന്തൽമണ്ണ എരവിമംഗലം ഒടിയൻചോലയിൽ ലൈഫ്മിഷൻ നിർ മിക്കുന്ന ആധുനിക ഭവന സമുച്ചയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ രാവിലെ തറക്കല്പിടും

ജില്ലയിൽ പ്ലാനിങ് ഓഫീസുകളുടെ ആസ്ഥാന മന്ദിരവും മുഖ്യമ ന്ത്രി ഉദ്ഘാടനം ചെയ്യും

സഹകരണ വകുപ്പിന്റെ മണ്ണാർക്കാട് യൂണി വേഴ്സൽ കോളേജിന്റെ പുതിയ കെട്ടിടം കൊടുമ്പ് ഗവർണമെന്റ് പോ ളി ടെക്നിക്കിലെ കെട്ടിടങ്ങൾ കഞ്ചിക്കോട്ട് ഇതര സംസ്ഥാന തൊഴിലാ ളികൾക്കായി നിർമിച്ച അപ്നാഘർ പാർപ്പിട സമുച്ചയം ഷൊർണ്ണൂരിലെ ജലശുദ്ധീകരണ ശാല എന്നിവ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും

കാസർകോടെത്തിയിട്ടും മുഖൃമന്ത്രി പിണറായി വിജയൻ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കാതിരുന്നത് കുറ്റബോധം കൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ കുറ്റപ്പെടുത്തി കൊലപാതകത്തിൽ പങ്കില്ലെങ്കിൽ മുഖ്യമ ന്ത്രി വീടുകൾ സന്ദർശിക്കേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര യ്ക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യാത്രയുടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം ഇന്ന് പൂർത്തിയാവും

ഇന്നും മറ്റന്നാളും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ മേഖലാജാഥ കോഴിക്കോട് ജില്ലയിലെ സന്ദർശനം ഇന്ന് പൂർത്തിയാക്കും

ഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ന യിക്കുന്ന തെക്കൻ മേഖലജാഥ രാവിലെ ആലപ്പുഴ നെടുമുടിയിൽ നിന്ന് ആരംഭിക്കും ആലപ്പുഴ ജില്ലയിലെ സ്വീകരണം പൂർത്തിയാക്കി ജാഥ ഇ ന്ന് കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കും ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന കുടുംബശ്രീ കേ രള ചിക്കൻ പദ്ധതി സംസ്ഥാനത്തിന്റെ ഭാവി വികസനത്തിന് മുതൽകൂ ട്ടാകുമെന്നു മന്ത്രി എ

സെന്റർഫോർ മറൈൻ ലിവിങ് റിസോഴ്സസ് ആന്റ് ഇക്കോളജിയുടെ പുതിയ ക്യാംപസ് അടൽ ഭവൻ കേന്ദ്രമന്ത്രി ഡോ ഹർഷവർധൻ ഇന്ന് കൊച്ചി പുതുവൈപ്പിൻ ഉദ്ഘാടനം ചെയ്യും പുതുവൈപ്പ് എൽ

സംസ്ഥാന ക്ഷീര വികസന വകുപ്പിന്റെ മാധ്യമ അവാർഡ് കോഴിക്കോ ട് ആകാശവാണി നിലയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആലപ്പുഴയിലെ ക്ഷീരകർഷക പാർലമെന്റിൽ സമ്മാനിക്കും ലോക ക്ഷീ ര ദിനത്തിലെ വയലുംവീടും പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്ത ക്ഷീര സമൃദ്ധി ക്ഷേമരാഷ്ട്രത്തിന് എന്ന ചിത്രീകരണത്തിനാണ് ശ്രവ്യമാധ്യമ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ലീന പി ബേബി സംവിധാനം ചെയ്ത ചിത്രീകരണം രചിച്ചത് അഷ്റഫ് കാവിലാ ണ്

കേരള നിയമസഭാ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ദേശീ യ വിദ്യാർഥി പാർലമെന്റ് ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും

ശ്രീരാമകൃഷ്ണൻ തിരുവനന്തപുരത്ത് അറിയിച്ചു രാവിലെ ഗവർണർ പി സദാശിവം നിയമസഭാ സമുച്ചയത്തിലെ മെമ്പേ ഴ്സ് ലോഞ്ചിൽ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യും ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളും സാധ്യതകളും പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന്റെ ഭാ ഗമായാണ് മൂന്ന് ദിവസത്തെ പാർലമെന്റ് സംഘടിപ്പിക്കുന്നത്

പ്രളയാനന്തര വരൾച്ച നേരിടാൻ കൃത്യമായ കർമപദ്ധതി തയ്യാറാക്ക ണമെന്ന് മന്ത്രി കെ ടി ജലീൽ നിർദേശിച്ചു മലപ്പുറത്ത് ജില്ലാതല ഉദ്യോ ഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂഗർഭജ ലനിരപ്പ് വൃതിയാന വിവരശേഖരണം നടത്തണമെന്നും ജലസമൃദ്ധമാ യ കാറികൾ കണ്ടെത്തി വെള്ളം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയ ണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

പ്രളയ ദുരിതാശ്ചാസത്തിന്റെ ഭാഗമായി മത്സ്യ തൊഴിലാളികൾക്കും മ ത്സ്യ കർഷകർക്കും സംസ്ഥാന ദുരന്ത പ്രതികരണനിധിയിൽ നിന്നും അ നുവദിച്ച ധനസഹായം മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കൊച്ചിയിൽ വിതര ണം ചെയ്യും എട്ട് കോടി രൂപയാണ് ധനസഹായം സംസ്ഥാന ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോഷങ്ങളുടെ ഭാഗമായി എറണാകുളം ജില്ലയിൽ കുമ്പളം നെട്ടൂർപാലം ഇന്ന് മന്ത്രി ജെ മേഴ്സി ക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്യും

വി സബ്സ്റ്റേഷന്റെ നിർമ്മാണം നാളെ തുടങ്ങും മന്ത്രി എം എം മണി ഉദ് ഘാടനം ചെയ്യും ഇടുക്കി ജില്ലയിലെ പ്രധാന അന്തർ സംസ്ഥാന പാതയുടെ ഭാഗമായ മൂ ന്നാർ മറയൂർ റബറൈസ്ഡ് റോഡ് ജോയിസ് ജോർജ്ജ് എം പി ഉദ്ഘാ ടനം ചെയ്തു മൂന്നാർ മുതൽ മറയൂർ വരെ നാൽപത് കിലോമീറ്റർ റോ ഡ് റബറൈസ്ഡ് ചെയ്യാൻ ശബരിമല ഉത്സവ ഫണ്ടിൽ നിന്നും ഇരുപത് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചിരുന്നു രാജ്യവിരുദ്ധ പോസ്റ്റർ പതിച്ചതിന് രണ്ടു വിദ്യാർഥികൾ മലപ്പുറത്ത് അ റസ്റ്റിലായി മലപ്പുറം ഗവൺമെന്റ് കോളജിലെ വിദ്യാർഥികളാണ് അറ സ്റ്റിലായത് കശ്മീരും മണിപ്പൂരുമായി ബന്ധപ്പെട്ടാണ് കോളജിൽ പോ സ്റ്റർ പതിച്ചത് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതികളുമായി പൊലിസ് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അഞ്ച് പേരെയും കൊല നടത്തി യ സ്ഥലത്തെത്തിച്ചാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്

മലയാള കാർട്ടൂൺ ശതാബ്ദിയുടെ ഭാഗമായി കൊല്ലത്ത് ഇന്നും നാളെ യും കാർട്ടൂൺ കോൺക്ലേവ് നടക്കും കേരള മീഡിയ അക്കാദമിയും കൊ ല്ലം പ്രസ് ക്ലബ്ബും ചേർന്നു സംഘടിപ്പിക്കുന്ന കോൺക്ലേവിൽ ദേശീയ രാജ്യാന്തര കാർട്ടൂണിസ്റ്റുകൾ പങ്കെടുക്കും